കോൺഗ്രസും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും

കോൺഗ്രസും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും

ഐ നാല് സ്ഥാനാർത്ഥികളെകൂടി പ്രഖ്യാപിച്ചതോടെ എൽ

എഫ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി മണ്ഡലം കൺവെൻഷനുകളും പൊതുയോഗങ്ങളുമായി പ്രചാരണം ഊർജ്ജിതമാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്

ചില മണ്ഡലങ്ങളിൽ പ്രചാരണരംഗത്തിറങ്ങാൻ രാത്രിവൈകി നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട് കോൺഗ്രസും ഘടകകക്ഷികളുമായി സീറ്റ് മാറ്റം പൂർത്തിയായി

പി പാർലമെന്ററി ബോർഡ് ന്യൂഡൽഹിയിൽ യോഗം ചേർന്ന് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകി ഇന്ന് രാവിലെ ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി

പി അധ്യക്ഷൻ ജെ പി നദ്ദയും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗം അസമിലെയും ബംഗാളിലെയും ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കും അന്തിമരൂപം നൽകി

എയിലെ മറ്റ് ഘടകകക്ഷികളും മത്സരിക്കുമെന്ന് യോഗത്തിന് ശേഷം ബി

അതിനിടെ എൻ

എഫ് ഭാരതീയ രാഷ്ട്രീയ ജനതാദളിന് അനുവദിച്ച മലമ്പുഴ സീറ്റ് കോൺഗ്രസിന് തിരിച്ച് നൽകി യു ഡി എഫ് ചെയർമാൻ രമേശ് ചെന്നിത്തലയും ഭാരതീയ രാഷ്ട്രീയ ജനതാദൾ ചെയർമാൻ ജോൺ ജോണും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ദേദ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി പ്രവർത്തിക്കുന്നതെന്നും കിഫ്ബിക്കുമേൽ വട്ടമിട്ട് പറക്കുന്നവർ തളരുകയെയുള്ളൂവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിലെ ആഡൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലെ പര്യടനം ഇന്നും തുടരും നാളെ പിണറായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ദ്ദേ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ അവസരം നൽകണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി കേരളം ഉൾപ്പെടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ചീഫ് സെക്രട്ടറിമാർക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അയച്ച കത്തിലാണ് നിർദ്ദേശം ചില സ്ഥലങ്ങളിൽ പരസ്യം പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾ കുത്തകയാക്കി വെച്ചിട്ടുണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇത്തരം സ്ഥലങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥിയും കുത്തകയാക്കി വെയ്ക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കത്തിൽ നിർദ്ദേശിച്ചു ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരും ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദര കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചുചേർത്ത രാഷ്ട്രീയകക്ഷി പ്രതിനിധികളുടെ യോഗത്തിലാണ് അദ്ദേഹം ഈ നിർദ്ദേശം നൽകിയത് യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സാമൂഹിക അകലം കൃത്യമായി പാലിക്കണമെന്നും യോഗങ്ങൾക്ക് നിശ്ചയിച്ച് നൽകിയ മൈതാനങ്ങളിലും ഓഡിറ്റോറിയങ്ങളിലും നിശ്ചിത എണ്ണം ആളുകളെയേ പങ്കെടുപ്പിക്കാവൂ എന്നും ടിക്കാറാം മീണ നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പിന് ഏർപ്പെടുത്തിയ തപാൽ വോട്ടിന്റെ നടപടി ക്രമങ്ങളും യോഗത്തിൽ മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചു

നാമനിർദ്ദേശ പത്രിക ഓൺലൈൻ വഴിയും സമർപ്പിക്കാം സ്ഥാനാർത്ഥികൾക്ക് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുണ്ടെങ്കിൽ പത്രികയ്ക്കൊപ്പം അത് വിശദമാക്കണമെന്നും ഇത്തരം വിവരങ്ങൾ മൂന്നുതവണ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

ജില്ലയിലെ എല്ലാ അതിർത്തി ചെക്പോസ്റ്റുകളിലും സിസി ടിവി ക്യാമറകൾ സ്ഥാപിക്കാൻ സംഘം ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി മദ്യം മയക്കുമരുന്ന് പണം ഉൾപ്പെടെ അനധികൃതമായി ജില്ലയിലേക്ക് കടത്താൻ സാഹചര്യമുള്ള പ്രദേശങ്ങളിൽ നിലവിൽ ഏർപ്പെടുത്തിയ സജ്ജീകരണങ്ങൾ സംഘം വിലയിരുത്തി

ദര മത്സര രംഗത്ത് സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു വരുന്നതോടെ പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിച്ചുതുടങ്ങി തെരഞ്ഞെടുപ്പു വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലി മുത്ത് ദ്ദേ നേരത്തെ സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ച എൽ ഡി

ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളും പ്രചാരണം തുടങ്ങി കഴിഞ്ഞു

ജെ പി സ്ഥാനാർത്ഥിയായി മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ പാലക്കാട് മണ്ഡലത്തിലെ പ്രചാരണത്തിനും ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ട്

ആലത്തൂർ നെന്മാറ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് രണ്ടാം അങ്കത്തിന് ഇറങ്ങുന്നത്

ഡി

ഡി എഫ് ഘടകകക്ഷികളായ സി

എന്തായാലും വരുംദിവസങ്ങളിൽ പാലക്കാട്ടെ ഉത്സവ മേളങ്ങൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണവും കൊടികയറുമെന്ന് ഉറപ്പായി

കന്യാകുമാരി ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ അന്തരിച്ച എം പി വസന്തകുമാറിന്റെ മകൻ വിജയകുമാർ മത്സരിക്കും ദേദ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ ചാമ്പ്യൻസ് കിരീടം മുംബൈ സിറ്റി എഫ് സിക്ക് മഡ്ഗാവിൽ നടന്ന ഫൈനലിൽ എ ടി കെ മോഹൻബഗാനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മുംബൈ ആദ്യമായി ഐ എസ് എൽ ചാമ്പ്യൻസ് കിരിടം കരസ്ഥമാക്കിയത്

ലീഗ് റൌണ്ടിൽ ഒന്നാംസ്ഥാനത്തെത്തിയ മുംബൈ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് കരസ്ഥമാക്കിയിരുന്നു ഇതോടെ ഒരു സീസണിൽ രണ്ട് കിരീടവും കരസ്ഥമാക്കുന്ന ആദ്യ ടീമെന്ന നേട്ടവും മുംബൈ സിറ്റി എഫ്

ദേദ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ മുംബൈ ഇന്ന് ഉത്തർപ്രദേശിനെ നേരിടും

കോഴിക്കോട് എറണാകുളം കൊല്ലം കണ്ണൂർ ജില്ലകളിൽ ഇരുനൂറിന് മുകളിലും മറ്റ് ജില്ലകളിൽ ഇരുനൂറിന് താഴെയുമാണ് രോഗബാധ

ദേദ കോട്ടയം ജില്ലയിൽ നാളെ മുതൽ എല്ലാ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുമെന്ന് കളക്ടർ എം അജ്ഞന അറിയിച്ചു

തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അടുത്ത ദിവസങ്ങളിൽ മഴ ലഭിക്കും മധ്യകേരളത്തിൽ ഇന്നും നാളെയും ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് വരെ ഇടിമിന്നലിന് സാധ്യതയുണ്ട്

ദ്ദേ സംസ്ഥാന വനിതാ കമ്മീഷൻ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം ഒരുവർഷം നീളുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ലോക വനിതാ സമ്മേളനം സെമിനാറുകൾ വെബിനാറുകൾ വനിതാ പുരസ്കാര വിതരണം മാധ്യമ പുരസ്കാര വിതരണം അന്താരാഷ്ട്ര വനിതാ ദിനാചരണം തുടങ്ങിയവ സംഘടിപ്പിക്കും